തമിഴ്നാട്ടിലും തെലങ്കാനയിലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിട്യൂട്ട് ഓഫ് മെഡിക്കൽ സയ്ൻസസ് സ്ഥാപിയ്ക്കാൻ തീരുമാനം

അസമിൽ കാർഷിക കടാശ്വാസ പദ്ധതി നടപ്പാക്കാൻ തീരുമാനം

ഒറ്റ ദൌത്യത്തിൽ തന്നെ ന്റൂറ്റ് ഉപ്ഗ്രഹങ്ങൾ വിക്ഷേപിച്ച് ഇന്ത്യ റെക്കോർഡ് നേട്ടം ക്കൈപിരിക്കുമെന്ന് നാല് വർഷം മുമ്പ് വരെ ആരുംതന്നെ ചിന്തിച്ചിട്ടുണ്ടാവില്ലെന്നും ഇന്ത്യ ഇപ്പോൾ ഗഗൻയാൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കല്യാണിൽ രണ്ട് പ്രധാന മെട്രോ ഇടനാഴികളുടെ നിർമ്മാണോദ്ഘാടനം ശ്രീ മോദി നിർവ്വഹിക്കും താനെ ഭിവാണ്ടി കല്യാൺ മെട്രോ ദഹീസർ മീരാ ഭയേന്ദർ മെട്രോ എന്നിവയാണ് ഇടനാഴികൾ മേഖലയിലെ പൊതുഗതാഗത്തെ ഗണ്യമായ തോതിൽ സഹായിക്കുന്നതാണ് ഈ പദ്ധതികൾ പ്രധാനമന്ത്രി ഭവന നിർമ്മാണ പദ്ധതിയിൻ കീഴിൽ പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും വേണ്ടിയുള്ള ഭവന നിർമ്മാണ പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും

തുടർന്ന് പൂനെയ്ക്ക് പോകുന്ന പ്രധാനമന്ത്രി പൂനെ മെട്രോ മൂന്നാംഘട്ട വികസനത്തിന് തറക്കല്ലിടും

കേന്ദ്രമന്ത്രിസഭാ തീരുമാനങ്ങളുടെ വിശദാംശങ്ങളുമായി സുപ്രപഭ വോയിസ് ബീഹാറിലെ പറ്റ്നയിൽ ഗംഗാ നദിക്ക് കുറുകെയുള്ള മഹാത്മാഗാന്ധി സേതുവിന് സമാരന്തരമായി പുതിയ നാലുവരി പാലം നിർമ്മിക്കും

പാവപ്പെട്ട കൂടുംബങ്ങൾക്ക് സൌജന്യ പാചക വാതക കണക്ഷൻ ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി ഉജ്ജല യോജന വിപുലമാക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു രാജ്യത്തെ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങൾക്കും ഉജ്ജല യോജന പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കുമെന്ന് ന്യൂഡൽഹിയിൽ മന്ത്രിസഭാ തീരുമാനം അറിയിച്ചു കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രഥാൻ പറഞ്ഞു ഇതുവരെ എൽ

ജി കണക്ഷൻ ലഭിക്കാത്തവർക്ക് കരുതൽ നിക്ഷേപം അടയ്ക്കാതെ കണക്ഷൻ നൽകുമെന്ന് മന്ത്രി അറിയിച്ചു

ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലുണ്ടായ ശബ്ദായമാനമായ രംഗങ്ങൾക്കിടയിൽ ചില അംഗങ്ങൾ ഉള്ളി ഉരുളക്കിഴങ്ങ് കർഷകരുടെ അവസ്ഥയെകുറിച്ച് ആശങ്ക ഉന്നയിച്ചതിന് മറുപടി നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി

കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രയോജനപ്പെടുത്തി കർഷകർക്ക് പലിശ രഹിത വായ്പ നൽകാനും അസം മന്ത്രിസഭൂ തീരുമാനിച്ചു

ആറ് മാസം നീണ്ട ഗവർണർ ഭരണം

സത്യപ്രതിജ്ഞയെ തുടർന്നുള്ള ആദ്യ മന്ത്രിസഭായോഗ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

എട്ട് വർഷമാണ് ഉപഗ്രഹത്തിന്റെ കാലാവധി

നിയമലംഘനത്തിന് മൂന്നു് പ്പർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കും

ടുണിയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഇത് ന്യൂനമർദ്ദമായി മാറിയതായും പിന്നീട് ശക്തി പ്രാപിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുന്നതായും സൂചനയുണ്ട് ഇന്നലെ കിഴക്കൻ ഗോദാവരിയിലേക്ക് വീശിയടിച്ച ഫെതായ് ചുഴലിക്കാറ്റ് ഗണ്യമായ കാർഷികവിളനാശത്തിന് ഇടയാക്കി

ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്ന് സംസ്ഥാനത്ത് ട്രെയിൻ ബസ് ഗതാഗതവും താറുമാറായിരിക്കുകയാണ്

ഭൂവനേശ്വർ അടക്കം പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ ക്നത്ത മഴ ലഭിച്ചു

ആദ്യ ടെസ്റ്റ് ഇന്ത്യ വിജയിച്ചിരുന്നു

പ്രിണ്ഡ്യ പരിക്കിൽ നിന്നും മുക്തനായി തിരിച്ചെത്തുമ്പോൾ ക്ണങ്കാലിന് പരിക്കേറ്റ പൃഥി ഷായ്ക്ക് പകരമാണ് അഗർവാൾ ടീമിലെത്തുന്നത്

ദുരന്തത്തിൽ ഗുരുതരമായ പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നും തൊഴിൽ മന്ത്രാലയത്തിന്റെ വാർത്താകുറിപ്പിൽ പറയുന്നു

പേരെ തീപിടുത്തത്തിന്റെ കാരണം അറിവായിട്ടില്ല